നികുതി നിർവ്വഹണത്തിൽ സമ്പൂർണ്ണ സുതാര്യതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നിർമ്മാണ രംഗം ശക്തിപ്പെടുത്തൂർ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഉല്പാദനാധിച്ച്ഠിത ഉത്തേജക പദ്ധതി കേന്ദ്ര മന്ത്രിസഭ അംഗീകൃരിച്ചു

സംസ്ഥാനത്ത് തദ്ദേശ്ശൃത്രഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്ക് വോട്ടു ച്ചെയ്യാൻ പ്രത്യേക സമയം അനുവദിക്കാൻ ്മ്യൂന്തീസഭാ തീരുമാനം

തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശാ പത്രികാ സമർപ്പണം നാളെ മുതൽ

ശബരിമല തീർത്ഥാടകർക്കായി ആരോഗ്യ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു

സുതാര്യത ഉറപ്പാക്കാനുള്ള പരിഷ്കരണ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്

ഒഡിഷയിലെ കട്ടക്കിൽ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൺസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ഇലക്ട്രോണിക് കോഫി ടേബിൾ ബുക്ക് പ്രധാനമുന്ത്രീ ചടങ്ങിൽ പുറത്തിറക്കി

ഇതിനായി ഉല്പാദനാധിഷ്ഠിത ഉത്തേജക പാക്കേജിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നല്കി

നിർമ്മാണ മേഖലയെ ആഗോളതലത്തിൽ മത്സരക്ഷമമാക്കി നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ശ്രീ ജാവ്ദേക്കർ അറിയിച്ചു

ഇതു സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനിച്ചു

പോളിങ്ങിന്റെ അവസാനത്തെ ഒരു മണിക്കൂർ സാംക്രമിക രോഗം പ്രബാധിച്ചവർക്കും സമ്പർക്ക വിലക്ക് നിർദേശിക്കപ്പെട്ടവർക്കും മാത്രം വോട്ട് ചെയ്യുന്നതിനായി മാറ്റിവയ്ക്കാൻ ഭേദഗതി നിർദേശിക്കുന്നു ഇപ്പോഴുള്ള വ്യവസ്ഥയനുസരിച്ച് രോഗബാധയുള്ളവർക്കും കാറൻറൈനിൽ കഴിയുന്നവർക്കും തപാൽ വോട്ടിനുള്ള അവസരമാണുള്ളത് എന്നാൽ ഈ വിഭാഗത്തിലുള്ളവർ തപാൽ വോട്ടിന് മൂന്ന് ദിവസം മുമ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശിക്കുന്ന അതിലും കുറഞ്ഞ സമയത്തിനകമോ റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം തെരഞ്ഞെടുപ്പ് ദിവസമോ അതിനു രണ്ടു ദിവസം മുമ്പോ രോഗബാധിതരാകുന്നവർക്കും സമ്പർക്ക വിലക്ക് നിർദശിക്കപ്പെട്ടവർക്കും ഇതു കാരണം വോട്ടു ചെയ്യാൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് രോഗം ബാധിച്ചവർക്കും സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്കും നേരിട്ട് വോട്ടുചെയ്യാൻ നിയമം ഭേദഗതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് ന്റെ പശ്ചാത്തലത്തിൽ പോളിങ് ഉദ്ദ്യോഗ്സ്ഥർക്കും ഏജൻറുമാർക്കും പ്രത്യേക സംരക്ഷണം നൽക്രുന്ന്തിനുള്ള മാർഗനിർദേശങ്ങളും ആരോഗ്യവകുപ്പ് തയ്യാറാക്ക്ക് ന്ന്ൽകണം

പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തും

കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി പത്രികാ സമർപ്പണത്തിനെത്തുന്ന സ്ഥാനാർഥിയടക്കം മൂന്നു പേരെ മാത്രമേ വരണാധികാരിയുടെ ഓഫിസിലേക്കു പ്രവേശിപ്പിക്കൂ എന്നു തിരുവനന്തപ്പൂര്യ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫിസർകൂടിയായ കളകർ ഡോ

സ്ഥാനാർത്ഥികളുടെയോ കക്ഷികളുടെയോ ഓഫീസുകളായി സർക്കാർ അതിഥിമന്ദിരങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ഫയലുകളും നേരിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയക്കുന്നത് ഒഴിവാക്കാനാണ് നടപടി ഫയലുകൾ പെരുമാറ്റ ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതാണോയെന്ന് സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

റ്റി വീഡിയോ പ്താറ്റ്ഫോമുകളെയും വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കിയതായി കേന്ദ്ര സർക്കാർ

ദീപാവലി കാലത്ത് പടക്കം നിരോധിക്കാനുള്ള കൽക്കത്ത ഹൈക്കോടതി ഉത്തരവാണ് ശരിവച്ചത് ആഘോഷങ്ങൾ പ്രധാനമെങ്കിലും മനുഷ്യജീവൻ അപകടത്തിലാകുമ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് ഡി

ശിവശങ്കർ കസ്റ്റഡി നീട്ടി സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും

എൽ

കാക്കാഴം കടപ്പുറത്താണ് കടൽഭിത്തി നവീകരിക്കാൻ തുക അനുവദി ച്ചിട്ടുള്ളത്